തങ്ങളുടെ പ്രദേശത്ത് കോവിഡ് വരില്ലെന്ന് ആരും കരുതരുതെന്നും നിതാന്ത ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

കൊറോണ പ്രതിരോധത്തിനായി തദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരുകളും നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു മുഖാവരണം ധരിക്കുന്നത് ഇപ്പോൾ സാധാരണമായിട്ടുണ്ടെന്നും ഇത് ഭാവിയിൽ സംസ്കാരമുള്ള സമൂഹത്തിന്റെ പ്രതീകമായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാമൂഹ്യ അകലം പാലിക്കുന്നതിലൂർ ലോക്ഡൌണിന്റെ ഭാഗമായി വീടിനുള്ളിൽ തന്നെ കൃഷ്ണിയ്ുന്ന കാര്യത്തിലും എല്ലാവരും കൂടുതൽ നിഷ്ക്ർഷ്ഷ പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇടുക്കി ജില്ലയിലുള്ള ആറുപേരിൽ ഒരാൾ വിദേശത്തുനിന്നും രണ്ട് പേർ തമിഴ്നാട്ടിൽ നിന്നും വന്നതാണ് ദ പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

കോട്ടയം ജില്ലയിലെ ഒരാൾ സംസ്ഥാനത്തിന് പുറത്ത് നിന്നും വന്നതാണ്

അതിൽ രണ്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ്

തിരുവനന്തപുരം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും ഓരോരുത്തരുടെ പരിശോധനാഫലമാണ് ഇന്ന് നെഗറ്റീവ് ആയത്

കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ശാസ്താംകോട്ട കോട്ടയം ജില്ലയിലെ മണർക്കാട് എന്നിവയാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ

കോവിഡ് പ്രതിരോധ നടപ്ടീകൾ വിലയിരുത്താൻ ജില്ലാ കലക്ടർമാരുമായും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുമായും ജില്ലാ പോലീസ് മേധാവികളുമായും വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഹോട്ട്സ്പോട്ട് ആയ മേഖലകളിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ ഭക്ഷ്യസാധനങ്ങൾ വീടുകളിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കണം അതിർത്തി ജില്ലകളിൽ പുതിയ കേസുകൾ വരുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കാട്ടിലെ ഉൌടുവഴികളിലൂടെ നടന്ന് കേരളത്തിലേക്ക് ആളുകൾ വരുന്നതു തടയാൻ വനം വകുപ്പിൻറെ സഹകരണത്തോടെ പോലീസ് നടപടി സ്വീകരിക്കണം റമദാൻ കാലമാണെങ്കിലും പള്ളികളിൽ കൂട്ട പ്രാർത്ഥനയോ ആളുകൾ കൂടുന്ന ചടങ്ങോ ഉണ്ടാകില്ലെന്ന് എല്ലാ മതസംഘടനകളും മതനേതാക്കളും ഉറപ്പുനൽകിയിട്ടുണ്ട് എന്നാൽ ചില പള്ളികളിൽ ആൾക്കൂട്ടമുണ്ടാകുന്നതായി റിപ്പോർട്ടുണ്ട് അതൊഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണം വ്യാജമദ്യം തടയാൻ കർശന നടപടി വേണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്കുവാഹനങ്ങൾ കൊണ്ടുവരുന്ന ഡ്രൈവർമാരെയും ക്സീനർമാരെയും കൃത്യമായി നിരീക്ഷിക്കണം മഴക്കാല പൂർവ ശുചീകരണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും പ്രവാസികളെ തിരികെ എത്തിക്കുമ്പോൾ എയർപോർട്ടിൽ രോഗപരിശോധനയ്ക്ക് വിപുലമായ സംവിധാനം ഒരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും

ലോക്ഡൌണുമായിബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതിഗതികളും മെയ് മൂന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ഡൌൺ രാണ്ടം ഘട്ടത്തിനു ശേഷം സ്വീകരിക്കേണ്ട നടപടികളും യോഗം ചർച്ച ചെയ്യും

ഷാർജയിൽ നിന്നെത്തിയ ഏഴ് വ്യസ്സുകാരിക്ക് മുപ്പത്തഞാം ദിവസം ശാസ്താംകോട്ടയിൽ രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം

ഇന്ന് ഇടുക്കിയിലും നാളെയും ബുധനാഴ്ചയും കോട്ടയത്തും ചൊവ്വാഴ്ച പത്തനംതിട്ടയിലും വ്യാഴാഴ്ച വയനാടും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു

ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസ്സിലും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് ഉണ്ട്

അതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സൃത്തൊഴിലാളികൾ മത്സൃ ബന്ധനത്തിന് പോകാൻ പാടുളളതല്ല

ജില്ലയിൽ കൊച്ചി നഗരം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് മഴ ശക്തമാണ്

മരണ സംഖ്യ രണ്ട് ലക്ഷം കവിഞ്ഞു

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അമേരിക്കയിലാണ് ഇവിടെ രോഗബാധിതരുടെ എണ്ണം ഒൻപതര ലക്ഷം കടന്നു

ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ടെന്ന് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ മറക്കരുത് മാധ്യമങ്ങളുടെ പ്രോത്സാഹനമാണ് പില്പ്പോഴും വിവാദങ്ങൾ ഉയർത്താൻ ഇട നൽകുന്നത്

കൂടുതൽ വിവരങ്ങളുമായ ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ആയിരുന്നു്

അതേസമയം കാസർകോട് ജില്ലയിലെ ഹോട്ട്സ്പോട്ട് ആയ പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ ഡോ ഡി സജിത് ബാബു അറിയിച്ചു

സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭൃമാക്കി ശ്രദ്ധേയമാവുകയാണ് ജൻ ഔഷധി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യവിദഗ്ധർ പങ്കെടുത്ത കോവിഡ് രാജ്യാന്തര പാനൽ ചർച്ച തിരുവനന്തപുരത്ത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

കേന്ദ്ര് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലെയും ഹരിതകേരളം മിഷനിലെയും വിദഗ്ധർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രേക്ഷകരിൽ നിന്നുള്ള ചോദൃങ്ങൾക്കു തത്സമയം മറുപടി നൽകും